സുധാകരൻ

ശ്രീരാമകൃഷ്ണൻ ആക്രമണത്തിന് സി

എം

ഗോവ മന്ത്രിസഭ ഉച്ചകഴിഞ്ഞ് പുനസംഘടിപ്പിക്കും

നാരായണക്കുറുപ്പ് ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനൽ നാളെ

താമരശ്ശേരി ചുരം റോഡ് വികസനം കോഴിക്കോടിന്റേയും വയനാടിന്റേയും മാത്രം വികസനമായല്ല ഗവൺമെന്റ് കാണുന്നതെന്നും കേരളത്തിന്റെ പൊതുവായ വികസന ത്തിന്റെ ആവശ്യമാണെന്നും മന്ത്രി ജി സുധാകരൻ പറഞ്ഞു കോഴിക്കോട് ഈങ്ങാപ്പുഴ കണ്ണോത്ത് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ചുരം റോഡ് ഉദ്ഘാടനത്തിന് സ്ഥലം എം പി കൂടിയായ രാഹുൽ ഗാന്ധിയെ പ്രോട്ടോകോൾ പ്രകാരമാണ് ക്ഷണിച്ചതെന്നും ക്ഷണം സ്വീകരിച്ച അദ്ദേഹം ഗവൺമെന്റിനെ അഭിനന്ദിച്ച് മറുപടി നല്കിയിട്ടുണ്ടെന്നും മന്ത്രി വൃക്തമാക്കി

കുപ്പായക്കോട് പാലം നിർമാണത്തിന് ആവശ്യമായ തുക പ്രളയപുനർ ് നിർമാണ ഫണ്ടിലുൾപ്പെടുത്തി അനുവദിക്കുമെന്നും സുധാകരൻ പറഞ്ഞു തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ വിദ്യാർത്ഥി അഖിലിന് കുത്തേറ്റ സംഭവത്തെ വിമർശിച്ച് സ്പീക്കർ പി

ലജ്ജാ ഭാരംകൊണ്ട് ശിരസ് പാതാളത്തോളം താഴ്ന്നതായി യൂണിവേഴ്സിറ്റി കോളേജിലെ മുൻവിദ്യാർത്ഥികൂടിയായ അദ്ദേഹം ഫേസ്ബുക്കിൽ കുറി ച്ചു അക്രമികളെ നയിക്കുന്ന തീജാലി എന്താണെന്നും ഏത് പ്രത്യയ ശാസ്ത്രമാണ് അക്രമികൾക്ക് തണലെന്നും അദ്ദേഹം ചോദിച്ചു മനംമടുപ്പിക്കുന്ന നാറ്റത്തിന്റെ ഈ സ്വർഗ്ഗം നമുക്ക് വേണ്ടെന്നും ഇതിനേ ക്കാൾ നല്ലത് സമ്പൂർണ്ണ പരാജയത്തിന്റെ നരകമാണെന്നും സ്പീക്കർ പറ ഞ്ഞു അക്രമികളോട് ശിരസ് കുനിച്ച് മാപ്പപേക്ഷിക്കാനും ശ്രീരാമകൃഷ്ണൻ ആവശ്യപ്പെട്ടു

ഐ

പ്രതികൾക്കായി തിരച്ചിൽ നടത്തിയെന്നും കണ്ടെത്താ നായില്ലെന്നും പ്പൊലീസ് അറിയിച്ചു തിരുവനന്ത്പുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്ന സംഭവം പുതിയ കാര്യമല്ലെന്നും സി

ഐ വിദ്യാർത്ഥി സംഘടനയായ എ ഐ എസ് എഫ് ന്റെ സ്ഥാനാർത്ഥികൾക്ക് പോലും കോളേജിൽ തെരഞ്ഞെടുപ്പിൽ മത്സ രിക്കാൻ കഴിയാറില്ലെന്നും മർദ്ദനം ഏൽക്കേണ്ടിവരുന്നുണ്ടെന്നും അദ്ദേഹം കോട്ടയത്ത് പറഞ്ഞു മഹത്തായ പാരമ്പരൃമുള്ള തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളജ് അക്രമികളുടെ താവളമാക്കിയതിന് മാർക്സിസ്റ്റ് പാർട്ടി മറുപടി പറയണ മെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു

യുടെ ഏകാധിപത്യ പ്രവണത അവസാനിപ്പിക്കണ മെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു

മൂന്നുമണിക്ക് പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ നടക്കുമെന്ന് മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പനാജിയിൽ അറിയിച്ചു കഴിഞ്ഞദിവസം കോൺഗ്രസ് വിട്ട് ബി

പിയിൽ ചേർന്ന പത്ത് എം

എമാരിൽ ചന്ദ്രകാന്ത് കാവ്ലേക്കർ ഫിലിപ്പ് നേരിറോഡ്റിഗ്സ് അത്തനാസിയോ മോൺസറാത്ത് എന്നിവരെയും ഡെപ്യൂട്ടി സ്പീക്കറും ബി

പി നേതാവുമായ മൈക്കൽ ലോബോയെയുമാണ് മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നത് ഇതിനായി ഉപമുഖ്യമന്ത്രി വിജയ് സർദേസായി ഉൾപ്പെടെ സഖ്യ കക്ഷിയായ ഗോവ ഫോർവേഡ് പാർട്ടിയിലെ മൂന്ന് മന്ത്രിമാരോടും കക്ഷി രഹിതനായ മന്ത്രിയോടും രാജിവയ്ക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു എന്നാൽ ഗോവയിലെ നേതാക്കളുമായി അല്ല ബിജെപി കേന്ദ്രനേതൃത്വ വുമായാണ് സഖ്യമുണ്ടാക്കിയതെന്നും അവരുമായി ചർച്ച ചെയ്തശേഷം രാജിക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും വിജയ് സർദേസായി പനാ ജിയിൽ പറഞ്ഞു മന്ത്രിസഭാ പുനസംഘടന തിങ്കളാഴ്ച ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിന്റെ കാര്യപരിപാടിയെ ബാധിക്കില്ലെന്ന് സ്പീക്കർ രാജേഷ് പട്നേക്കർ അറിയിച്ചു പ്രതിപക്ഷനേതാവിന്റെ പേര് തിങ്കളാഴ്ചക്കകം കോൺഗ്രസ് നൽകണ്മെന്നും അദ്ദേഹം പറഞ്ഞു കർണ്ണാടകയിലെ രാഷ്ട്രീയ അനിശ്ചിതത്വം തുടരുന്നതിനിടെ വിമത എം

എ മാരുടെ പിന്തുണ നേടിയെടുക്കാൻ കോൺഗ്രസ് നേതൃത്വം പിന്നാമ്പുറ ചർച്ചകളാരംഭിച്ചു മുഖ്യമന്ത്രി എച്ച്

കുമാരസ്വാമി വിശ്വാ സവോട്ടെടുപ്പിന് തയ്യാറായതോടെ വിമതരെ അനുനയിപ്പിക്കാൻ സംസ്ഥാ നത്തെ മുതിർന്ന നേതാക്കൾ ചർച്ചകൾ തുടരുകയാണ് മന്ത്രി ഡി

ശിവകുമാർ മന്ത്രിസ്ഥാനം രാജിവെച്ച എം ടി

വിമത എം എൽ എ മാരായ രാമലിംഗ റെഡ്ഡി മുനിരത്ന ആർ

മുഖ്യമന്ത്രി കുമാരസ്വാമിയും എം

എ മാരു മായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നതായി ബംഗലൂരു റിപ്പോർട്ടുകൾ പറയു ന്നു എന്നാൽ ഈ നീക്കങ്ങൾക്കൊണ്ടൊന്നും ഒരു ഫലവും ഉണ്ടാകി ല്ലെന്നും കോൺഗ്രസ് ജെ

എസ് സഖ്യഗവൺമെന്റ് വീഴുകതന്നെ ചെയ്യുമെന്നും ബിജെപി സംസ്ഥാന പ്രസിഡന്റ് ബി

എൽ എ മാരെ തിരികെ പാർട്ടിയിൽ കൊണ്ടുവരാൻ വഴിവിട്ട ഗൂഢനീക്കങ്ങൾ നടക്കുന്നുണ്ടെന്നും യെദ്യൂരപ്പ കുറ്റപ്പെടുത്തി നിയമരംഗത്ത് നൽകിയ സംഭാവനകൾ മുൻനിർത്തി സംസ്ഥാന ഗവർണർ ജസ്റ്റിസ് പി സദാശിവം തമിഴ്നാട് ഡോക്ടർ അംബേദ്കർ നിയമ സർവകലാശാലയുടെ ഓണററി എൽ എൽ

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദാണ് അദ്ദേഹത്തിന് സർവകലാശാ ലയിൽ ബഹുമതി ബിരുദം സമ്മാനിക്കുന്നത് സുപ്രീം കോട തി യിലെ സീനിയർ ജഡ് ജി എസ് എ ബോബ്ഡെ മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് വിജയ കമ ലേഷ് തഹിൽ രമണി എന്നിവർക്കും ഓണററി എൽ

ഡി ബിരുദം സമ്മാനിക്കും

തിരിക്കും നബാർഡ് അടക്കം സ്ഥാപനങ്ങൾ കർഷക ഉത്പാദക സംഘങ്ങളെ സഹായിച്ചാൽ വയനാടിന്റെ മുഖച്ഛായ മാറ്റാനാകുമെന്ന് മന്ത്രി ഡോ

വയനാടിനെ കാർബൺ ന്യൂട്രലാക്കി മാറ്റാൻ കൂടുതൽ മര്ങ്ങൾ വെച്ചുപിടിപ്പിക്കണം കാപ്പി കർഷകരെ ഉൾപ്പെടുത്തി സംഘങ്ങൾ രൂപീകരിച്ചും ഉത്പന്നം പ്രത്യേക ബ്രാന്റിൽ തയ്യാറാക്കിയും വിപണനം വ്യാപിപ്പിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു തിരുവനന്തപുരത്ത് നബാർഡ് സ്ഥാപകദിനച്ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി കോഴിക്കോട് ബൈപ്പാസിന്റെ ആറുവരിപ്പാത നിർമ്മാണം ഉടൻ ആരം ഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി എം

പാർലമെന്റിലെ ഓഫീസിൽ വിളിച്ച യോഗത്തിലാണ് മന്ത്രി ഇതുസംബന്ധിച്ച ഉറപ്പ് നൽകിയത് യോഗത്തിൽ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനും പങ്കെടുത്തു നെടുങ്കണ്ടം കസ്റ്റഡിയിൽ മരിച്ച രാജ്കുമാറിന്റെ മൃതദേഹം വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യുമെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് കെ

പൊലീസിനും ആർ ഡി ഒ യ്ക്കും ഇതുസംബ ന്ധിച്ച് നാളെ നിർദ്ദേശം നൽകുമെന്ന് അദ്ദേഹം കോട്ടയത്ത് പറഞ്ഞു മരണകാരണവും മരണത്തിലേക്ക് നയിച്ച മറ്റ് കാരണങ്ങളും കണ്ടെത്താൻ ഇതാവശ്യമാണെന്ന് അദ്ദേഹം അറിയിച്ചു നിലവിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൃത്യതയില്ലാത്താണ് അതിൽ ഗുരുതരമായ പിഴവുകളു ണ്ടെന്നും ജസ്റ്റിസ് നാരായണക്കുറുപ്പ് പറഞ്ഞു

മുറിവുകളുടെ സ്വഭാവവും കാലപ്പഴക്കവും പരിശോധിക്കണമെങ്കിൽ വീണ്ടും പോസ്റ്റുമോർട്ടം ചെയ്യേ ണ്ടിവരുമെന്നാണ് കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നതെന്നും അദ്ദേഹം പറ ഞ്ഞു വാഗ്മണിൽ രാജ്കുമാറിന്റെ മൃതദേഹം സാസ്കരിച്ച സ്ഥലത്ത് കാവലേർപ്പെടുത്താൻ പൊലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ജസ്റ്റിസ് നാരായണക്കുറുപ്പ് അറിയിച്ചു അതിനിടെ ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പ് രാജ്കുമാർ കസ്റ്റഡിമരണകേസുമായി ബന്ധപ്പെട്ട് നെടുങ്കണ്ടം പൊലീസ് സ്റ്റ്ഷനിൽ തെളിവെടുപ്പ് നടത്തി

ആറുമാസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് ജുഡീഷ്യൽ കമ്മീഷ നോട് ഗവൺമെന്റ് നിർദ്ദേശിച്ചിരിക്കുന്നത് രാജ്കുമാറിന്റെ കുടുംബത്തിന് നീതി ലഭ്യമാക്കാൻ വനിതാ കമ്മീ ഷൻ ഇടപെടുന്നില്ലെന്ന് മൃഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ല തികാ സുഭാഷ് കുറ്റപ്പെടുത്തി മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ നെടു ങ്കണ്ടം പൊലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ പങ്കെടുക്കുകയാ യിരുന്നു അവർ കണ്ണൂർ രാജ്യാന്തര വിമാനതാവളത്തിൽ നിന്ന് ഇന്നലെ രാത്രി രണ്ട് യാത്രക്കാരിൽ നിന്നായി രണ്ടര കിലോയോളം സ്വർണ്ണം പിടികൂടി

കോഴിക്കോട് സ്വദേശിനിയിൽ നിന്ന് ഒരു കിലോ സ്വർണ്ണവും കാസർഗോഡ് സ്വദേശിയിൽ നിന്ന് ഒന്നര കിലോ സ്വർണ്ണവുമാണ് പിടിച്ചത് ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനൽ നാളെ

ഇന്ത്യയെ സെമിയിൽ തോൽപ്പിച്ച് ന്യൂസിലണ്ട് ഫൈനലിലെത്തിയപ്പോൾ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ തോൽപ്പിച്ചാണ് കലാശപ്പോരാട്ടത്തിന് അർഹത നേടിയത് നാളെ ഉച്ചകഴിഞ്ഞ് മൂന്നുമുത ലാണ് മത്സരം ആദ്യ കിരീടം ലക്ഷ്യമിട്ടാണ് ഇരുടീമുകളും കളിയ്ക്കിറ ങ്ങുന്നത് ഇന്നലെ അന്തരിച്ച പ്രശസ്ത ചലച്ചിത്ര ഛായാഗ്രാഹകൻ എം

രാധാകൃഷ്ണന്റെ മൃതദേഹം ഉച്ചകഴിഞ്ഞ് തിരുവന്തപുരം തൈക്കാട് ശാന്തികവാടത്തിൽ സംസ്കരിക്കും മൃതദേഹം അൽപസമയത്തിനകം കലാഭവനിൽ പൊതുദർശനത്തിന് വെക്കും ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ രാത്രി തിരുവനന്തപുരത്തായിരുന്നു എം

മികച്ച നൽകുന്ന സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഏഴുതവണ അദ്ദേഹം നേടിയിട്ടുണ്ട് സംസ്ഥാനത്തെ മികച്ച രാഷ്ട്രീയ വൃക്തിത്വത്തിന് നൽകുന്ന സാണ്ടർ കെ തോമസ് സ്മാരക പുരസ്കാരത്തിന് മന്ത്രി കെ

സംസ്ഥാനത്ത് ഭൂപ്രകൃതിയും കൃഷി ഇനങ്ങളും അടിസ്ഥാനമാക്കി അഞ്ച് കാർഷിക ഇക്കോളജിക്കൽ സോണുകൾ ഉടൻ നിലവിൽ വരുമെ ന്ന് മന്ത്രി വി

ജില്ലാ സാമ്പത്തിക സ്ഥിതി വിവര കണക്ക് വകുപ്പിന്റെ കാർഷിക സ്ഥിതിവിവര സർവ്വേ തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സ്വർണ്ണവില വീണ്ടും വർദ്ധിച്ചു

കുറ്റ്യാട്ടൂർ മാങ്ങയ്ക്ക് ഭൌമസൂചക പദവി നേടിയെടുക്കാൻ ശ്രമങ്ങൾ അന്തിമ ്ഘട്ടത്തിലാണെന്ന് മന്ത്രി വി

കുറ്റ്യാട്ടൂർ മാങ്ങാ കർഷക സമിതിയുടെ പേരിലാണ് രജിസ്ട്രേഷന് ശ്രമം നടക്കുന്നത് കേരള കാർഷിക സർവകലാശാലയുടെ സഹായത്തോടെ ഭൌമസൂചികാ രജിസ്ട്രേഷന് അപേക്ഷ തൃശൂരിൽ തയ്യാറാക്കി